പാലിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജ യൻ

ജമ്മു കശ്മീരിൽ മൂന്ന് ഭീകരരെ സൈന്യം വധിച്ചു

ചിത്തിര ഉത്സവം നടക്കുന്നതിനാൽ മധുര മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്ന ഹർജി മദ്രാസ് ഹൈക്കോടതി പരിഗണിക്ക വെയാണ് കമ്മീഷന്റെ പരാമർശം മധുരയിൽ മാത്രം തെരഞ്ഞെ ടുപ്പ് മാറ്റിവെക്കുന്നത് പ്രായോഗികമല്ലെന്ന് കമ്മീഷൻ കോടതിയെ അറിയിച്ചു

ഹർജിയിൽ കോടതി ഇന്ന് വിധി പറയും പത്തനംതിട്ടയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ ഇന്നോ നാളെയോ പ്രഖ്യാപിക്കുമെന്ന് മുതിർന്നു നേതാവ് കുമ്മനം രാജ ശേഖരൻ പറഞ്ഞു നടപടി ക്രമങ്ങളുടെ ഭാഗമാണ് പട്ടിക വൈകു ന്നത് ആശയക്കുഴപ്പമുണ്ടെന്നത് അടിസ്ഥാന രഹിതമാണെന്നും എല്ലാവർക്കും പ്രാതിനിധ്യം നൽകിയാണ് പട്ടിക തയ്യാറാക്കിയ തെന്നും കുമ്മനം തിരുവനന്തപുരത്ത് പറഞ്ഞു തിര ഞ്ഞെ ടു പ്പിൽ നൽകിയ ഒരു വാഗ്ദാനവും ബി ജെ പി ഗവൺമെന്റ് പാലിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കോൺഗ്രസ് നയം ബി ജെ പി വീറോടെ നട പ്പിലാക്കുകയാണെന്നും രണ്ടുപേർക്കും ഒരേ നിലപാടാണെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു എ കെ ജി ദിനാചരണത്തിന്റെ ഭാഗ മായി കണ്ണൂർ കാൽടെക്സിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുക യായിരുന്നു അദ്ദേഹം എ കെ ജിയുടെ പ്രതിമയിൽ മുഖ്യമന്ത്രി പുഷാർച്ചന നടത്തി എ കെ ജിയുടെ ജന്മനാടായ പെരളശ്ശേരിയിൽ വൈകീട്ട് നട ക്കുന്ന റാലി സിപിഐഎം പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും

സിപിഐഎമ്മിൽ നിന്നാണ് എം എൽ എമാരും മന്ത്രിമാരും ബി ജെപിയിൽ ചേരുന്നതെന്ന് അദ്ദേഹം സ്വകാര്യ ചാനലിനോട് പറഞ്ഞു സിപിഐഎമ്മിനെ സഹായി ക്കാനാണ് ബി ജെ പി ചില മണ്ഡലങ്ങളിൽ അപ്രധാന സ്ഥാനാർത്ഥികളെ നിർത്തിയതെന്നും അദ്ദേഹം ആരോപിച്ചു തുഷാർ വെള്ളാപ്പള്ളി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരി ക്കുന്നതിന് താൻ എതിരല്ലെന്ന് എസ് എൻ ഡി പി യോഗം ജന റൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു സ്ഥാനാർത്ഥി യായാൽ തുഷാർ എസ് എൻ ഡി പി ഭാരവാഹി സ്ഥാനം രാജി വെക്കേണ്ടി വരുമോ എന്ന് ഇപ്പോൾ പറ്റയാനാവില്ല എസ് എൻ ഡി പിക്ക് ഒരു പാർട്ടിയോടും പ്രത്യേക സ്നേഹമോ വിദ്വേഷമോ ഇല്ല തുഷാറിനോടും ശരിദൂരമായിരിക്കുമെന്ന് വെള്ളാപ്പള്ളി ചേർത്തലയിൽ വ്യക്തമാക്കി

ഗ്രൂപ്പ് സമവായം എന്നതിനോട് യോജിപ്പില്ല എന്നാൽ പാർട്ടിയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ളവരുണ്ടെന്ന് മുല്ലപ്പള്ളി സ്ഥകാര്യ ചാനലിനോട് അഭിപ്രായപ്പെ ട്ടു

സിറ്റിംഗ് എം പി കൂടിയായ എൻ സി പിയിലെ മുഹമ്മദ് ഫൈസലും മുൻ എം പി കോൺഗ്രസിന്റെ ഹംദുള്ള സെയ്ദും തമ്മിലാണ് പ്രധാനമത്സരം ഇരു സ്ഥാനാർത്ഥി കളും ഉച്ചയോടെ ലക്ഷദ്വീപ് ചീഫ് ഇലക്ടറൽ ഓഫീസർ മുമ്പാകെ നാമനിർദേശ പത്രിക സമർപ്പിക്കും

ബന്ധുക്കളെ ബന്ധപ്പെടാൻ അനുവദിക്കാ ത്തതിൽ ദുരൂഹതയുണ്ടെന്നും കോടതി വൃക്തമാക്കി മനുഷ്യക്ക ടത്ത് കേസിൽ പിടിയിലായ രണ്ട് പ്രതികളുടെ ജാമ്യാപേക്ഷ പരി ഗണിക്കവെയാണ് കോടതി നിലപാട് അറിയിച്ചത് നിലവിലെ അന്വേഷണം സംബന്ധിച്ച വിശദാംശങ്ങൾ ഗവൺമെന്റ് മുദ്ര വെച്ച കവറിൽ കോടതിയിൽ സമർപ്പിച്ചു കേസിൽ പ്രധാനപ്രതി ഉൾപ്പെടെ ആറ് പേരെ തമിഴ്നാട് തിരുവള്ളൂരിൽ നിന്നാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അംഗമായി പരി ഗണിക്കാൻ ഫയൽ സുപ്രിംകോടതിക്ക് കൈമാറുന്നതിന് കേന്ദ്രത്തിന് നിർദേശംചനൽകണമെന്ന മുൻ ഡി ജി പി ടി പി സെൻകുമാറിന്റെ ്ഹർജി ഹൈക്കോടതി തള്ളി സെൻകുമാറിനെ നിയമിക്കുന്ന കാര്യത്തിൽ കേന്ദ്രത്തിന് പരിമിതമായ അധികാരം മാത്രമേയുള്ളൂ വെന്ന് കേന്ദ്ര ഗവൺമെന്റ് നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു

സംസ്ഥാനത്ത് ചൂട് കനത്തോടെ വൈദ്യുതി ഉപയോഗത്തിൽ വൻ വർധന രേഖപ്പെടുത്തി മൂന്നു ദിവസമായി പ്രതിദിന ഉപ ഭോഗത്തിൽ ശരാശരി മൂന്ന് ദശലക്ഷം യൂണിറ്റിന്റെ വർധനയാണ് രേഖപ്പെടുത്തിയത്

ചൂടിനോടൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചാരണവും വൈദ്യുതി ഉപഭോഗം കൂടാൻ കാരണമായതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ജമ്മു കശ്മീരിൽ വ്യത്യസ്ത ഏറ്റുമുട്ടലുകളിലായി മൂന്ന് ഭീക രരെ സൈന്യം വധിച്ചു ബന്ദിപ്പോര ജില്ലയിലെ ഹാജ്നിൽ ഇന്നലെ രാത്രിയുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് ഭ്രീകരരും ഷോപ്പിയാനിൽ ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരനുമാണ് കൊല്ലപ്പെട്ടത് ഭീകരർ പ്രദേശത്ത് ഒളിച്ചിരുപ്പുണ്ടെന്ന സ്റന്ദേശത്തെ തുടർന്ന് സുരക്ഷാ സേന തിരച്ചിൽ നടത്തുന്നതിനിടെ സൈന്യത്തിനു നേരെ ഭീക രർ വെടിയുതിർക്കുകയായിരുന്നു

വടക്കൻ കശ്മീരിലെ ബാരാമുള്ള ജില്ലയിലെ സോപോർ മേഖ ലയിലും സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാ യതായി റിപ്പോർട്ടുകളുണ്ട് ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ ഇന്ന് നട ക്കുന്ന പാകിസ്ഥാൻ ദേശീയ ദിനാചരണ പരിപാടി ഇന്ത്യ ബഹി ഷ്കരിച്ചു ദേശീയ ദിനാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ ഹുറി യത്ത് കോൺഫറൻസ് നേതാക്കളെ ക്ഷണിച്ചതിൽ പ്രതിഷേധി ഇന്ത്യയുടെ ച്ചാണ് ചടങ്ങിൽ പങ്കെടുക്കാൻ ഇന്ത്യ മന്ത്രിമാരെ അയക്കാറുണ്ട്

സുരക്ഷിതമായ കുടിവെള്ളം ലഭിക്കാത്ത കോടി ക്കണക്കിന് ആളുകൾ ലോകത്തുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഗുരുതരമായ ജല ക്ഷാമം നേരിടുകയാണ് ഇന്ത്യയിൽ പോലും ചിലയിടങ്ങളിൽ ശുദ്ധമായ കുടിവെള്ളം ഇന്ന് ഒരപൂർവ്വ വസ്തുവാണ് എല്ലാ വർക്കും കുടിവെള്ളം എന്ന ലക്ഷ്യത്തിലേക്ക് ആരേയും പിന്നിൽ ഉപേക്ഷിക്കാതെ എന്ന സന്ദേശത്തോടെയാണ് ഈ വർഷത്തെ ജലദിനാചരണം തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ ദിനാചരണ ത്തിന്റെ ഭാഗമായി രാജ്യാന്തര ശിൽപശാല ഉൾപ്പെടെ പരിപാടി കൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ജലപരിപാലനം പരിപോഷണം വരൾച്ചാ വെള്ളപ്പൊക്കുനിയന്ത്രണം ജലസംരക്ഷണ മാർഗ ങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ വിദ്ഗധർ സംസാരിക്കും നെതർലന്റ് സിൽ നിന്ന് അഞ്ചംഗ സംഘവും പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് സാഫ് കപ്പ് വനിതാ ഫുട്ബോൾ ഫൈനലിൽ ഇന്ത്യ ഇന്ന് നേപ്പാളിനെ നേരിടും

തുടർച്ചയായ ആറാം കിരീടം ലക്ഷ്യമിട്ടാണ് ഇന്ത്യ കളത്തിലിറങ്ങുന്നത് അബുദാബിയിൽ സ്പെഷൽ ഒളിംപിക് മെഡൽ നേട്ടത്തിൽ ഇന്ത്യക്ക് റെക്കോർഡ്

നിലവിൽ ചാമ്പ്യൻമാരായ ചെന്നൈ സൂപ്പർ കിങ്ങ്സും ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സും തമ്മിലാണ് ഉദ്ഘാടന മത്സരം രാത്രി എട്ടിന് കളി ആരംഭിക്കും കഴിഞ്ഞ സീസണിലെ എട്ട് ടീമുകളാണ് ഇത്തവണയും മത്സര ത്തിന് പാലക്കാട്ട് സംസ്ഥാന ഇന്റർ പോളി കുലോത്സവത്തിലെ സ്റ്റേജ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും

ബാലൻ ഉദ്ഘാടനം ചെയ്യും കലോത്സവത്തിലെ സ്റ്റേജ് ഇതര മത്സരങ്ങൾ പൂർത്തിയായി

കൊച്ചി മെട്രോയിൽ രണ്ട് കോടിയിലേറെ യാത്രക്കാർ യാത്ര ചെയ്തതിന്റെ ഭാഗമായി ഇന്ന് മെട്രോ ടൂ ക്രോർ ഫിയസ്റ്റ സംഘ ടിപ്പിക്കും ഇടപ്പള്ളി സ്റ്റേഷനിൽ വൈകീട്ട് ആറരയോടെയാണ് ഫാഷൻ ഷോ സംഗീത പരിപാടി എന്നിവ ഉൾപ്പെടുത്തി ഫിയസ്റ്റ സംഘടിപ്പിക്കുന്നത് ചെർപ്പുളശ്ശേരിയിൽ സിപിഐഎം ഏരിയ കമ്മിറ്റി ഓഫീസിൽ പീഡിപ്പിക്കപ്പെട്ട് ഗർഭിണിയായെന്ന് പരാതി നൽകിയ പെൺകു ട്ടിയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തുമെന്ന് റിപ്പോർട്ട്

സംഭവ ത്തിൽ യുവാവിനെതിരെയും നവജാത ശിശുവിനെ ഉപേക്ഷിച്ച തിന് പെൺകുട്ടിക്കെതിരെയും പൊലീസ് കേസെടുത്തിരുന്നു

രാവിലെ ആറരയോടെ മേൽശാന്തി ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന ചടങ്ങിനു ശേഷമാണ് കൊടിയേ റ്റം രാവിലെ കൊല്ലം കൊണ്ടാടുംപടി ക്ഷേത്രത്തിൽ നിന്ന ആദ്യ അവകാശ വരവ് പിഷാരിക്കാവിലെത്തുന്നതോടെ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അവകാശവരവുകൾക്ക് തുടക്ക മാകും

പട്രോളിംഗ് നടത്തിയ് പൊലീസ് സംഘമാണ് വിക്രം സാരാഭായ് സ്പെയ്സ് റിസർച്ച് സെന്റർ ഉൾപ്പെടുന്ന പ്രദേശത്ത് ഡ്രോൺ കണ്ടെത്തിയത് സാധാരണ് ഉപയോഗിക്കുന്നതിനേക്കാൾ വലുപ്പമുള്ളതാണ് കോവളത്ത് ക്ണ്ടെത്തിയ അജ്ഞാത ഡ്രോൺ

കേന്ദ്രീയ വിദ്യാലയത്തിനു സമീപം വെച്ചാണ് ഇവർ പിടിയിലാ യത് ന്യൂസിലാന്റിൽ ഭീകരാക്രമണത്തിൽ മരിച്ച തൃശൂർ കൊടു ങ്ങല്പൂർ സ്വദേശി അൻസിയുടെ മൃതദേഹം തിങ്കളാഴ്ച നാട്ടിലെ ത്തിക്കും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറിയതായാണ് റിപ്പോർട്ട്

എസ് കെ എം ജെ സ്കൂളിൽ വയനാട് ജില്ലാകലക്ടർ എ ആർ അജയകുമാർ ഉദ്ഘാ ടനം ചെയ്യും ദിനാചരണത്തിന്റെ ഭാഗമായി റാലിയും ബോധവ ത്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചിട്ടുണ്ട് കൊല്ലം ഓച്ചിറയിൽ ഗുണ്ടാസംഘം തട്ടിക്കൊണ്ടു പോയ പെൺകുട്ടിയുടെ വീട് പ്രതിപക്ഷ നേതാവ് രമ്മേശ് ചെന്നിത്തല സന്ദർശിച്ചു മൂന്ന് ദിവസം മുമ്പാണ് രാജസ്ഥാൻ സ്വദേശിയായ പെൺകുട്ടിയെ ഗുണ്ടാസംഘം വീട്ടിൽ അതിക്രമിച്ചു കയറി തട്ടി ക്കൊണ്ടു പോയത് സംഭവത്തിൽ മൂന്നു പേരെ പൊലീസ് അറസ്റ്റു ചെയ്തിട്ടുണ്ട്